ഡി കുമാരസ്വാമി വിമത എം

എമാരുടെ രാജിക്കാ രൃത്തിൽ ഇന്നു തന്നെ തീരുമാനമെടുക്കാൻ നിയമസുഭാ സ്പീക്കർക്ക് സുപ്രിംകോടതി നിർദേശം

ചന്ദ്രശേഖരൻ

ങ്ങ ൽ കർണാടകയിൽ രാജി വെയ്ക്കേണ്ട അടിയന്തര സാഹചര്യമില്ലെന്ന് മുഖ്യ മന്ത്രി എച്ച്

മുമ്പ് സമാന സാഹചര്യത്തിൽ ബി എസ് യെദ്യൂര്യപ്പ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നില്ലെന്നും അദ്ദേഹം ബംഗുളൂരുവിൽ പറഞ്ഞു ഗവൺമെന്റിന് ഭൂരിപക്ഷം ഉണ്ടെന്നും കുമാര സ്വാമി അവകാശപ്പെട്ടു നിർണായക മന്ത്രിസഭായോഗം വിധാൻസൌദയിൽ തുടരുകയാണ് മന്ത്രി സഭാ യോഗത്തിന് മുന്നോടിയായി കുമാരസ്വാമി കോൺഗ്രസ് നേതാക്കളു മായി ചർച്ച നടത്തി

സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പി സി സി അധ്യക്ഷൻ ഗുണ്ടുറാവു ഉപമുഖൃമന്ത്രി ജി പരമേശ്വര തുടങ്ങിയവരുമായാണ് ചർച്ച നടത്തിയത് വൈകീട്ട് വരെ സമ യമുണ്ടെന്നും എന്തും സംഭവിക്കാമെന്നും മന്ത്രി ഡി കെ ശിവകുമാർ പറ ഞ്ഞു രാജി വെച്ച് മുംബൈയിലേക്ക് പോയ കോൺഗ്രസ് എം

എ സോമശേഖര ബംഗുളൂരുവിൽ തിരിച്ചെത്തി

എ സ്ഥാനം മാത്ര മാണ് രാജിവെച്ചതെന്നും ഇപ്പോഴും കോൺഗ്രസുകാരനാണെന്നും അദ്ദേഹം പറഞ്ഞു കർണാടകയിലെ വിമത എം

എമാരുടെ രാജിക്കാര്യത്തിൽ ഇന്നു തന്നെ തീരുമാനമെടുക്കണമെന്ന് സുപ്രീംകോടതി നിയമസഭാ സ്പീക്കറോട് ആവശ്യപ്പെട്ടു സ്പീക്കറുടെ തീരുമാനം നാളെ കേസ് വീണ്ടും പരിഗണി ക്കുമ്പോൾ അറിയിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു പത്ത് വിമത എം എൽ എമാർക്കും ബംഗുളൂരു വിമാനത്താവളം മുതൽ നിയമസഭാ മന്ദിരം വരെ സംരക്ഷണം നൽകാൻ കർണാടക പൊലീസ് മേധാവിക്ക് സുപ്രീം കോടതി നിർദേശം നൽകിയിട്ടുണ്ട് രാജിവെച്ച പത്ത് വിമത എം എൽ എമാരോടും ഇന്ന് വൈകീട്ട് ആറു മണി യോടെ സ്പീക്കറെ നേരിൽ കണ്ട് രാജിക്കാര്യം അറിയിക്കാനും ആവശ്യമെ ങ്കിൽ പുതിയ രാജിക്കത്ത് കൊടുക്കാനും മൂന്നംഗ ബെഞ്ച് ആവശ്യപ്പെട്ടു

എമാർ അൽപ സമ യത്തിനകം ബംഗുളൂരുവിലേക്ക് തിരിക്കും ഉച്ചയ്ക്ക് പുറപ്പെടുന്ന വിമാന ത്തിൽ ഇവർ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് കർണാടക ഗോവ വിഷയങ്ങളിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം പാർലമെന്റ് വളപ്പിലെ ഗാന്ധിപ്രതിമയ്ക്ക് മുന്നിൽ ധർണ്ണ നടത്തി ജനാധിപത്യം സംര ക്ഷിക്കണമെന്നാവശൃപ്പെട്ട് നടത്തിയ ധർണ്ണയിൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് ഇടതു സമാജ്വാദി പാർട്ടി അംഗങ്ങൾ പങ്കെടുത്തു

ലോക്സഭയിൽ കൊടിക്കുന്നിൽ സുരേഷ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി കർണാടകയിലെയും ഗോവയിലെയും കോൺഗ്രസ് എം എൽ എമാരുടെ രാജി സാഹചര്യം കോൺഗ്രസ് നേതാക്കളുടെ യോഗം ഡൽഹിയിൽ ചർച്ച ചെയ്തു സോണിയാഗാന്ധി രാഹുൽഗാന്ധി തുടങ്ങിയ നേതാക്കൾ യോഗ ത്തിൽ പങ്കെടുത്തു ഗോവയിൽ ബി

പിയിൽ ചേർന്ന പത്ത് കോൺഗ്രസ് എം

എമാർ പാർട്ടി അധ്യക്ഷൻ അമിത്ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പാർട്ടി വർക്കിങ് പ്രസിഡന്റ് ജെ

ഇന്ന് വൈകീട്ട് ഗോവ മന്ത്രിസഭ പുനസംഘടിപ്പിച്ചേക്കും

ജെ പിയിൽ ചേർന്ന കോൺഗ്രസ് എം

അയോധ്യാ ഭൂമി തർക്ക കേസിൽ മധ്യസ്ഥനടപടിക്രമങ്ങളുടെ സ്ഥിതി വിവര റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം സമർപ്പിക്കാൻ സുപ്രിംകോടതി ആവശ്യ പ്പെട്ടു ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണ ഘടനാ ബെഞ്ചാണ് എഫ്

കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയ തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട രണ്ട് ബില്ലുകൾ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര മന്ത്രി സന്തോഷ് ഗാങ്വാർ അറിയിച്ചു തൊഴിൽ സുരക്ഷാ ചട്ടങ്ങൾ തൊഴി ലാളികളുടെ ആരോഗൃവും തൊഴിൽ സാഹചര്യവും എന്നീ വിഷയങ്ങളി ലാണ് ബില്ലുകൾ അവതരിപ്പിക്കുന്നത് പത്ത് കോടിയോളം തൊഴിലാളികൾക്ക് ബില്ലുകളുടെ പ്രയോജനം ലഭിക്കുമെന്ന് മന്ത്രി ന്യൂഡൽഹിയിൽ പറഞ്ഞു മുൻ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഇന്ദിരാ ജയ്സിങ്ങിന്റെയും ഭർത്താവ് ആനന്ദ് ഗ്രോവറിന്റെയും വസതിയിലും ഓഫീസുകളിലും സി ബി

ഇവർ ഭാരവാഹികളായ സന്നദ്ധ സംഘടന ലോയേഴ്സ് കളക്ടിവീന്റെ ഡൽഹിയിലെയും മുംബൈയിലെയും ഓഫീ സുകളിലും റെയ്ഡ് നടത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു വിദേശ ഫണ്ട് വകമാറി ചെലവഴിച്ചെന്ന ആരോപണത്തിൽ ഇന്ദിരാ ജയ്സിങ്ങിനും ആനന്ദ് ഗ്രോവറിനുമെതിരെ സി ബി ഐ കേസെടുത്തിരുന്നു

ബി ഐ കണ്ടെത്തൽ ആരോപണങ്ങൾ ലോയേഴ്സ് കള ക്ടീവ് നേരത്തെ നിഷേധിച്ചിരുന്നു കേരളത്തിലെ കർഷകരെടുത്ത വായ്പകൾക്ക് മൊറട്ടോറിയം നീട്ടി നൽകാൻ ബാങ്കുകൾക്ക് നിർദേശം നൽകണമെന്ന് രാഹുൽഗാന്ധി ലോക്സ ഭയിൽ ആവശ്യപ്പെട്ടു

നെടുമ്പാശേരിയിലെ ഹജ്ജ് ക്യാംപ് മറ്റന്നാൾ മന്ത്രി ഡോ

സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ താൽകാലിക ഓഫീസ് ഇന്ന് സിയാൽ അക്കാദമിയിൽ പ്രവർത്തിച്ച് തുടങ്ങും

എയർ ഇന്ത്യയാണ് ഈ വർഷം നെടുമ്പാശേരി എംബാർക്കേഷൻ പോയിന്റിൽ നിന്ന് തീർത്ഥാടകരെ കൊണ്ടു പോകുന്ന ത്

ഭവനവായ്പ എടുത്തിന്റെ പേരിൽ ഒരാളെയും താമസ സ്ഥലത്തുനിന്ന് പുറത്താക്കില്ലെന്ന് മന്ത്രി ഇ

കോഴിക്കോട് സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ അദാലത്ത് ഉദ്ഘാടനം ചെയ്യുക യായിരുന്നു മന്ത്രി ഭവനവായ്പകൾ ഇളവുകളോടെ തിരിച്ചടയ്ക്കാൻ മൂന്ന് മാസത്തെ കാലാവധി നൽകിയിട്ടുണ്ടെന്നും ആരുടേയും വായ്പകൾ പൂർണ്ണമായി എഴുതി തള്ളുകയില്ലെന്നും മന്ത്രി അറിയിച്ചു കിനാലൂർ ഭൂമി വിഷയത്തിൽ ജാഗ്രത കുറവ് സംഭവിച്ചിട്ടുണ്ടോയെന്ന് പരി ശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് അഡക്കറ്റ് ജനറലിന്റെ ഓഫീസിൽ നിന്നും വിശദാംശങ്ങൾ തേടിയിട്ടുണ്ടെന്നും ചന്ദ്രശേഖരൻ പിന്നീട് മാധ്യമങ്ങളെ അറിയിച്ചു ഹാരിസൺ ഭൂമി സംബന്ധിച്ച് തുടർ നടപടികൾക്കായി റവന്യൂ സെക്രട്ട റിയെ ചുമതലപ്പെടുത്തിയതായും മന്ത്രി പറഞ്ഞു

ജില്ലാ കലക്ടർ സാംബശിവ റാവു മുഖ്യപ്രഭാഷണം നടത്തി നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ തെളിവെടുപ്പ് തുട രുന്നു കേസിലെ ഒന്നാംപ്രതി സബ് ഇൻസ്പെക്ടർ സാബുവിനെ സ്റ്റേഷനി ലെത്തിച്ച് തെളിവെടുത്തു കേസിലെ രണ്ടുംമൂന്നും പ്രതികളായ എ

റെജിമോൻ സിവിൽ പോലീസ് ഓഫീസർ നിയാസ് എന്നിവരെ കസ്റ്റ ഡിയിൽവിട്ടുകിട്ടാൻ ക്രൈംബ്രാഞ്ച് കോടതിയെ ഉടൻ സമീപിക്കും

ലോകകപ്പ് ക്രിക്കറ്റ് രണ്ടാം സെമിയിൽ നിലവിൽ ചാംപ്യൻമാരായ ഓസ്ട്രേ ലിയ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും

ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് ഏഴു ജയങ്ങളുമായി രണ്ടാം സ്ഥാനക്കാരായാണ് അഞ്ചു വട്ടം ചാംപ്യൻമാരായ ഓസ്ട്രേലിയയുടെ സെമി പ്രവേശനം

വിയ്യൂർ സെൻട്രൽ ജയിലിൽ തടവുകാർ തയാറാക്കിയ ബിരിയാണിയുടെ ഓൺലൈൻ വിൽപന ആരംഭിച്ചു ജയിൽ ഡി ജി പി ഋഷിരാജ് സിങ്ങിന്റെ നിർദേശ പ്രകാരമാണ് ഓൺലൈൻ വിൽപന രംഗത്തേക്ക് പ്രവേശിച്ചതെന്ന് ജയിൽ സൂപ്രണ്ട് നിർമലാനന്ദൻ നായർ ആകാശവാണിയോട് പറഞ്ഞു

ജയ്ടിൽ പരിധിയിലെ ആറ് കിലോ മീറ്റർ ചുറ്റളവിലാണ് ബിരിയാണി നൽകുന്നത്

ജനങ്ങളുടെ പ്രതികരണം അറിഞ്ഞ ശേഷം കൂടുതൽ ഭക്ഷ്യസാധനങ്ങൾ ഓൺലൈൻ വഴി വിതരണം ചെയ്യുമെന്ന് സൂപ്രണ്ട് അറിയിച്ചു എഴുത്തുകാരൻ യു

പ്രദീ പ്കുമാർ എം

ഈ സഹായം സാഹിത്യ ജീവിതത്തിലേക്ക് കൂടുതൽ ശക്തമായി തിരിച്ചുവരാൻ പ്രചോദനമാകുമെന്ന് യു

ഖാദർ പറഞ്ഞു

കൊലപാതകവുമായി ബന്ധപ്പെട്ട് അർജുനന്റെ അഞ്ചു സുഹൃത്തു ക്കളെ പനങ്ങാട് പൊലീസ് കസ്റ്റഡിയിലെടുത്തു ഈ മാസം രണ്ടിനാണ് അർജുനനെ കാണാതായത് പിറ്റേ ദിവസം തന്നെ അർജുനനെ കാണാനി ല്ലെന്ന പരാതിയും സംശയിക്കുന്നവരുടെ പേരു വിവരങ്ങളും പൊലീസിനു നൽകിയിരുന്നെങ്കിലും അവർ കാര്യമായി അന്വേഷിച്ചില്ലെന്ന് അർജുനന്റെ പിതാവ് വിദ്യൻ ആരോപിച്ചു

കരിക്കോട് മഹിളാ മ ന്ദിരത്തിൽ സൂപ്രണ്ടിന്റെയും മേട്രന്റെയും അസാന്നിധ്യം അന്തേവാസിക ളെ പ്രവേശിപ്പിക്കുമ്പോഴത്തെ നടപടികൾ പാലിക്കാതിരിക്കൽ തുടങ്ങിയ ക്രമക്കേടുകൾ കണ്ടെത്തി ഇഞ്ചവിള വയോജന സദ്നത്തിൽ രജിസ്റ്റർ രേ ഖകളിൽ ഗുരുതര വീഴ്ചകളും കണ്ടുപിടിച്ചു ഓട്ടോ ഫെയർ മീറ്ററിന്റെ വേരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതിലെ കാലതാമസം ഡെസ്പാച്ച് രജിസ്റ്റർ സൂക്ഷിക്കാതിരിക്കൽ തുടങ്ങിയ ക്രമ ക്കേടുകൾ ലീഗൽ മെട്രോളജി ഓഫീസിലും കണ്ടെത്തി സ്വർണ്ണ വില റെക്കോർഡിൽ

മലപ്പുറം അരീക്കോട് കഞ്ചാവ് വിൽപനക്കാരെ പിടികൂടാൻ ശ്രമിക്കുന്ന തിനിടെ എസ് ഐക്ക് കുത്തേറ്റു കഞ്ചാവ് സംഘത്തിൽ നിന്ന് പിടികൂടിയ യാളെ വിലങ്ങു വെക്കുന്നതിനിടെയാണ് എസ് ഐ നൌഷാദിനെ പ്രതി കുത്തി വിലങ്ങുമായി ഓടി രക്ഷപ്പെട്ട പ്രതിക്കായി തിരച്ചിൽ തുടരുന്നു

ഐയെ കോഴിക്കോട് മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ പ്രവേശി പ്പിച്ചു